ത ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നവരെ പുറപ്പെടും മുമ്പ് ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ദുബായിലെ ഇന്ത്യൻ എംബസി ത മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വഴി മറ്റന്നാൾ മുതൽ ആയിരം പേർക്ക് പ്രവേശനം നൽകുന്നതിന് നടപടി സ്വീകരിക്കും ത സംസ്ഥാനത്ത് വീട് നിർമ്മാണം ഉൾപ്പെടെ സ്വകാര്യ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

തിലോത്തമൻ

വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊറോണാ വൈറസ് വാക്സിൻ വികസിപ്പിക്കുന്നതിന് ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളുടെ സ്ഥിതി വിശദമായി വിലയിരുത്തി രോഗ നിർണ്ണയവും പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൊറോണാ വാക്സിൻ വികസന ടാസ്ക് ഫോഴ്സ് യോഗത്തിൽ അധ്യക്ഷം വഹിച്ച പ്രധാനമന്ത്രി അവലോകനം ചെയ്തു

പഠന ഗവേഷണ വിഭാഗവും വ്യവസായികളും ഗവൺമെന്റും അതിവേഗം മരുന്നിനായി ഒന്നിച്ചത് ശ്രദ്ധേയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രേര ഇന്ത്യയിലേക്ക് യാത്രതിരിക്കുന്നവരെ പുറപ്പെടും മുമ്പ് ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ദുബായിലെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും അറിയിച്ചു

ഇന്ത്യയിലെത്തിയാൽ കർശന ക്വാറന്റൈന് വിധേയമാകാമെന്ന് സമ്മതപത്രം ഒപ്പിട്ട് നൽകണമെന്നും എംബസി വ്യക്തമാക്കി രുമ ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ലക്ഷക്കണക്കായ ഇന്ത്യക്കാരെ കോവിഡ് പശ്ചാത്തലത്തിൽ വിമാനങ്ങളും നാവികസേനാ കപ്പലുകളും ഉപയോഗിച്ച് തിരികെ കൊണ്ടു വരുന്നതിന് നടപടി പൂർത്തിയായി ഈ ദശകത്തിലെ ഏറ്റവും വലിയ ഒഴിപ്പിക്കൽ നടപടിക്കാണ് നാളെ തുടക്കമിടുന്നത് മൂന്ന് ലക്ഷത്തിലേറെ പേരാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തിരികെ വരാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അടിയന്തര ചികിത്സ വിസാ കാലാവധി കഴിയൽ തുടങ്ങി തിരിച്ചെത്തൽ നിർബന്ധിതരായവരെയായിരിക്കും തിരികെ കൊണ്ടു വരിക രുമ പ്രവാസികൾ നാളെ സംസ്ഥാനത്ത് തിരിച്ചെത്തുന്ന സാഹചര്യത്തിൽ കൊച്ചി നെടുമ്പാശേരി വിമാനത്താവളത്തിലും കൊച്ചി തുറമുഖത്തും സജ്ജീകരണങ്ങൾ പൂർത്തിയായി ഇതിന്റെ ഭാഗമായി ആരോഗ്യപ്രവർത്തകർക്കും ജീവനക്കാർക്കും രോഗബാധ ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചു

കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ കൽപ്പറ്റ കളക്ട്രേറ്റിൽ ചേർന്ന യോഗം തീരുമാനിച്ചു

രുമ ജോലിയും കൂലിയും നഷ്ടപ്പെട്ട പ്രവാസികൾ സ്വന്തമായി ടിക്കറ്റെടുത്ത് നാട്ടിലേക്കു മടങ്ങണമെന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ നിലപാട് മനുഷ്യത്വരഹിതമാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടി പറഞ്ഞു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായവും ഗൾഫ് രാജ്യങ്ങളിലെ എംബസികളുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ക്ഷേമ ഫണ്ടും ഇതിനായി വിനിയോഗിക്കണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു രേര അയൽ സംസ്ഥാനങ്ങളിൽ കുടുങ്ങി കിടക്കുന്ന മലയാളികളെ തിരികെ കൊണ്ടുവരുന്നതിന് കേരളത്തിൽ നിന്ന് ബസ്സുകൾ അയക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ

ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തികഞ്ഞ കള്ളക്കളിയാണ് നടത്തുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

അതിർത്തി ചെക്ക് പോസ്റ്റുകൾ തുറക്കുകയും യാത്ര അനുവദിച്ചു തുടങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ നോർക്കയിൽ ഇനി മുതൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ലെന്ന് അധികൃതർ അറിയിച്ചു

രുമ സംസ്ഥാനത്ത് പുറത്ത് കഴിയുന്ന മലയാളികൾ തിരിച്ചെത്തുന്ന സാഹചര്യത്തിൽ അവരെ നിരീക്ഷണത്തിലാക്കാൻ മുഴുവൻ ഒരുക്കങ്ങളും തൃശൂർ ജില്ലയിൽ പൂർത്തീകരിച്ചതായി ജില്ലാ കളക്ടർ എസ് ഷാനവാസ് അറിയിച്ചു

തമിഴ്നാട്ടിൽ നിന്നെത്തിയ മൂന്ന് ഹോമിയോ വിദ്യാർഥികളെ രോഗലക്ഷണങ്ങളെ തുടർന്ന് കോവിഡ് കെയർ സെന്ററിലേക്ക് മാറ്റിയതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു

സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ച മൂന്ന് പേർ വയനാട് ജില്ലയിൽ നിന്നാണ്

രുര സംസ്ഥാനത്ത് വീട് നിർമാണം ഉൾപ്പെടെ സ്വകാര്യ നിർമാണ പ്രവർത്തനങ്ങൾക്ക് തടസമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇത് പുനരാരംഭിക്കുന്നതിന് പ്രത്യേക അനുമതി ആവശ്യമില്ല

രുര കണ്ടെയ്ൻമെന്റ് സോൺ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ സ്വകാര്യ ഓഫീസുകൾ നിബന്ധനകളോടെ തുറന്ന് പ്രവർത്തിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

വടക്കൻ മേഖലയിൽ നിർമാണത്തിന് ചെങ്കല്ല് ആവശ്യമായ സാഹചര്യത്തിൽ ഇത് വെട്ടുന്നതിന് നിയന്ത്രണം ഒഴിവാക്കി

മുൻഗണനാ വിഭാഗങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച സൌജന്യ അധിക വിഹിതം മെയ് ജൂൺ മാസങ്ങളിലും തുടരും

അതേസമയം വർധിപ്പിച്ച വില വിൽപന വിലയിൽ പ്രതിഫലിക്കാനിടയില്ല ദേദ എറണാകുളം അമ്പലമേട് പിണർമുണ്ടയിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു

കെട്ടിടത്തിന്റെ ആറാം നിലയിലാണ് തീപിടുത്തമുണ്ടായത് അഗ്നിശമന യൂണിറ്റ് എത്തി തീയണച്ചു

ബ്രിട്ടൺ മരണസംഖ്യയിൽ ഇറ്റലിയെ മറികടന്നു